ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയും തൃാഗവും ഓർമ്മിപ്പിച്ച് പരാക്രം പർവ് ആഘോഷം ഇന്നു മുതൽ ഞായറാഴ്ചവരെ നടക്കും

ഏഷ്യാകപ്പ് ഫൈനലിൽ നിലവിലുള്ള ചാമ്പ്യനായ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശുമായി ഏറ്റുമുട്ടും

പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനും ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് അജിത് ധോവലും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിനു മുന്നോടിയായി ജോധ്പൂർ സൈനിക കേന്ദ്രത്തിൽ പരാക്രം പർവ് എന്ന മൂന്നു ദിനം നീളുന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവ്വഹിക്കും പാക് അധിനിവേശ കശ്മീരിൽ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന്റെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയുക്കു വേണ്ടി ജീവൻ വെടിഞ്ഞ സൈനികരേയും പ്രധാനമന്ത്രി അനുസ്മരിക്കും

കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

ഉെസ്റ്റ്യത്തിന്റെ ആത്മധൈര്യം എടുത്തു കാണിക്കുന്ന രൂപത്തിലാണ് പരിപാടികൾ നിശ്ചയിച്ചിട്ടുള്ളത് പരാക്രം പർവിന്റെ ഉദ്ഘാടനത്തിനായി ഇന്ന് പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ത്യ ഗേറ്റിലെത്തും അവിടെ കുട്ടികളുമായി മന്ത്രി സംവാദം നടത്തും

സൈനൃത്തിന്റെ ധീരത പ്രകടിപ്പിക്കുന്ന വീഡിയോ ചിത്രങ്ങളും ഫോട്ടോഗ്രാഫുകളും പ്രദർശിപ്പിക്കും

തീവ്രവാദികളിൽ നിന്ന് സൈന്യം പിടിച്ചെടുത്ത ആയുധങ്ങൾ പൊതുജനങ്ങൾക്ക് കാണാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ജമ്മുകശ്മീരിൽ നിന്നാണ്ട് ആയുധങ്ങൾ എത്തിച്ചിട്ടുള്ളത് സൈന്യത്തിന്റെ ആർട്ടിലറി തോക്കുകളും മറ്റ് യുദ്ധോപകരണങ്ങളും പ്രദർശനത്തിലുണ്ടാവും മിലിട്ടറി ബാന്റിനൊപ്പം ശനി ഞായർ ദിവസങ്ങളിൽ പുറത്തു നിന്നുള്ള കലാകാരന്മാരുടെ സംഗീത വിരുന്നും ഉണ്ടാകും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മിന്നലാക്രമണത്തിന്റെ രണ്ടാം വാർഷികം അടുത്തു വന്ന പശ്ചാത്തലത്തിൽ പുറത്തുവിട്ട വീഡിയോ വിശ്വാസ യോഗൃമാണ് എന്ന് വിവരാവകാശ പ്രക്ഷേപണ വകുപ്പ് മന്ത്രാലയം അറിയിച്ചു ആളില്ലാ വ്യോമവാഹനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ചിത്രീകരണമാണ് വീഡിയോയിൽ ദൃശ്യമായിട്ടുള്ളത് തീവ്രവാദ കൃാമ്പ് നശിപ്പിക്കുന്ന ദൃശ്യവും ഇതിലുണ്ട്

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനും ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ എസ്

നസീർ എന്നിവർ അംഗങ്ങളുമായ ബഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്

ക്ഷേത്രത്തിനും മസ്ജിദിനും പള്ളിക്കുറ്റ തുല്യപ്രധാന്യമാണ്

വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണു ഓരോ വിധിയുമെന്നു ജസ്റ്റിസ് അശോക് ഭൂഷൺ പറഞ്ഞു

ഒരു ജവാൻ വീരമൃത്യു വരിച്ചു

അനന്ദ്നാഗ് ജില്ലയിലെ ഗാസിഗുണ്ട് പ്രദേശത്ത് തീവ്രവാദി സാന്നിദ്ധ്യം ഉണ്ടെന്ന വിവരം ലഭിച്ചതിനെത്തുടർന്നാണ് സ്ഥലത്ത് സുരക്ഷാസേന തിരച്ചിൽ നടത്തിയത് തുടർന്ന് നടന്ന ആക്രമണത്തിൽ ലഷ്കർ ഇ തൊയ്ബ തീവ്രവാദി ആസിഫ് മാലിക് കൊല്ലപ്പെട്ടു ബുദ്ഗാം ജില്ലയിലെ പൻസാനിൽ നടന്ന മറ്റൊരു തീവ്രവാദ ഏറ്റുമുട്ടലിൽ രണ്ട് തീവ്രവാദികളെ സുരക്ഷ സേന വധിച്ചു ഷിറാസ് അഹമ്മദ് ഭട്ടി ഇർഫാൻ അഹമ്മദ് ഡർ എന്നീ ഹിസ്ബുൾ മുജാഹിദീൻ ത്രീവ്പാദികളാണ് കൊല്ലപ്പെട്ടത്

മുംബൈയിൽ ഒരു പൊതു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൃവസായ വികസനത്തിന് ഉതകുന്ന രീതിയിൽ യുവാക്കളുടെ തൊഴിൽശേഷി വർദ്ധിപ്പിക്കുകയും പുതുതായി തൊഴിൽ മേഖലയിലേയ്ക്ക് എത്തിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു

ഇന്ത്യ ചൈന അതിർത്തി മേഖലയിലെ നിലവിലുള്ള അവസ്ഥയെ കുറിച്ച് ഇരു വിഭാഗവും വിലയിരുത്തി വുഹാൻ ഉച്ചകോടിയിൽ ഇരുരാജ്യങ്ങളുടെയും നേതാക്കൾ നേരത്തെ നിശ്ചയിച്ച തന്ത്രപരമായ കാര്യങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തി

വിവിധ തൊഴിൽ മേഖലയിലുള്ള യുവജനങ്ങളുടെ നൈപുണ്യം വരുമാനം തൊഴിലവസരം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായാണ് ഈ സംരംഭം വിവിധ സ്ഥാപനങ്ങളിലും കമ്പനികളിലും തൊഴിൽ വൈദഗ്ധ്യം ലഭിച്ച യുവാക്കൾക്ക് പരിശീലനത്തിനു ശേഷം സ്ഥിരം തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി മേള സംഘടിപ്പിക്കുമെന്ന് കേന്ദ്ര നൈപുണ്യ വികസനമന്ത്രി പറഞ്ഞു ഒഡീഷയിലെ കാലഹന്ദിയിക്കെ ധർമ്മഗറിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ധർമ്മേന്ദ്രപ്രധാൻ

ആഗോള രാഷ്ട്രീയം സാമ്പത്തികം സുരക്ഷ എന്നിവയെ കുറിച്ച് ബ്രിക്സ് മന്ത്രമാരുമായി ശ്രീമതി സുഷമ ചർച്ച നടത്തി

ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യ മന്ത്രി ലീൻഡിവേ സിസുലു റഷ്യൻ വിദേശകാരൃ മന്ത്രി സെർജി ലാഖ് റ്റോവ് ചൈനയുടെ വാങ്യി എന്നിവർ പങ്കെടുക്കും